ദേശീയ പെൻഷൻ പദ്ധതിയിൽ ഗ്രവ

തെലങ്കാനയിലും രാജസ്ഥാനിലും വോട്ടെടുപ്പ് അൽപ സമ യത്തിനകം ആരംഭിക്കും

സംസ്ഥാന സ്കൂൾ കല്യോത്സവത്തിന് ആലപ്പുഴയിൽ ഇന്ന് തിരശ്ശീല ഉയരും

തൃശൂരിൽ വീടിനകത്ത് സ്ഫോടനം രണ്ട് കുട്ടികൾ മരി ച്ചു

നിയന്ത്രണങ്ങളില്ലാതെ ഓർഗാനിക് ഉൽപ്പന്നങ്ങളുടെയും സംസ്കരിച്ച ഉൽപ്പന്നങ്ങളു ടെയും കയറ്റുമതി അനുവദിക്കുന്നതാണ് നയം സവാള ഉൾപ്പെടെ പ്രാഥമിക കാർഷികോൽപ്പന്നങ്ങളുടെ കയ റ്റുമതി വിലയും ലഭ്യതയും അടിസ്ഥാനമാക്കി കാലാകാലങ്ങളിൽ അവലോകനം ചെയ്യു മെന്ന് വാണിജ്യ മന്ത്രി സുരേഷ്പ്രഭു ന്യൂഡൽഹിയിൽ അറിയിച്ചു

തെലങ്കാനയിലും രാജസ്ഥാനിലും വോട്ടെടുപ്പ് അൽപസമയ ത്തിനകം ആരംഭിക്കും

നേരത്തെ വോട്ടെടുപ്പ് പൂർത്തിയായ ചത്തീസ്ഗഡ് മധ്യപ്ര ദേശ് മിസോറാം നിയ്മസഭകൾക്കൊപ്പം രാജസ്ഥാനിലെയും തെല ങ്കാനയിലെയും ജനവിധി ചൊവ്വാഴ്ച പുറത്തുവരും

ചടങ്ങിൽ ബംഗാളി സംവിധായകൻ ബുദ്ധദേവ്ദാസ് ഗുപ്ത മുഖ്യാതിഥിയാകും നടിയും സംവിധായകയുമായ നന്ദിതാദാസ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ തുടങ്ങിയവർ പങ്കെടുക്കും സമഗ്ര സംഭാവനാ പുരസ്കാരം ഇറാനിയൻ സംവിധായകൻ മജീദ് മജീദിക്ക് മുഖ്യമന്ത്രി സമ്മാനിക്കും അഞ്ച്ലക്ഷം രൂപയും ശിൽപവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം തുടർന്ന് ഇറാനിയൻ സംവിധായകൻ അസ്ഗർ ഫർഹാദിയുടെ എവരിബഡിനോസ് പ്രഗർശിപ്പിക്കും

പ്രളയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അതി ജീവനസന്ദേശം നൽകുന്ന ചിത്രങ്ങളും മേളയിൽ ഉണ്ടാകും

ശബരിമലയിലേർപ്പെടുത്തിയിരിക്കുന്ന അനാവശ്യ നിയന്ത്രണ ങ്ങളും നിരോധനജ്ഞയും പിൻവലിക്കണമെന്നും ആചാരാനുഷ്ഠാ നങ്ങൾ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് യ്യുഡിഎഫ് എം എൽഎ മാർ നിയമസഭാ കവാടത്തിന് മുന്നിൽ നടത്തുന്ന സത്യ ഗ്രഹം അഞ്ചാം ദിവസത്തിലേക്ക് കടന്നു പ്പി എസ് ശിവകുമാർ പാറയ്ക്കൽ അബ്ദുളള ഡോ എൻ ജയ്യരാജ് എന്നിവരാണ് സത്യ ഗ്രഹം നടത്തുന്നത് ബി ജെ പി സംസ്ഥാന ജന്ദ്രറൽ സെക്രട്ടറി എ

രാധാ കൃഷ്ണൻ സെക്രട്ടേറിയറ്റിന് ുമുമ്പിൽ ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാരസമരം അഞ്ചാം ദ്രിവ്സവും തുടരുന്നു ശബരിമലയിലെ നിരോധനാജ്ഞയും നിയ്ന്ത്രണ്ങളും പിൻവലിക്കുക അയ്യപ്പഭ ക്തർക്ക് അടിസ്ഥാന്റ സൌകർ്യങ്ങൾ ഏർപ്പെടുത്തുക കെ സുരേ ന്ദ്രനെതിരായ കള്ളക്കേസുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവ ശ്യങ്ങളുന്നയിച്ചാണ് സമരം ശബരിമലയിൽ ഇന്നു പുലർച്ചെ മുതൽ വൻ തീർത്ഥാടനത്തി രക്ക് കനത്ത സുരക്ഷ ഇന്നു കൂടി തുടരും സന്നിധാനത്ത് തന്ത്ര പ്രധാന ഭാഗ്ങ്ങളിലെല്ലാം പൊലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ശ്രീകോ വിലിന് മുമ്പിൽ കാണിക്കയിടുന്നതും സോപാനത്ത് നിന്ന് ദർശനം നടത്തുന്നതും വിലക്കിയിട്ടുണ്ട് ശബരിമലയിൽ തീർത്ഥാടകർക്ക് കാണിക്കയിടാൻ പ്രത്യേക ഡിജിറ്റൽ കൌണ്ടർ ദേവസ്വം ബോർഡ് സജ്ജീകരിച്ചു ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് കാണിക്ക സമർപ്പി ക്കാൻ സ്പൈപ്പിംഗ് മെഷീൻ ഏർപ്പെടുത്തി പമ്പയിൽ നിന്നും ത്രിവേണിയിലേക്ക് ശബരിമല തീർത്ഥാട കർക്ക് കെഎസ്ആർടിസി സൌജന്യയാത്ര ഒരുക്കി

കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം മറ്റ ന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭുവും ചേർന്ന് നിർവഹിക്കും

വിമാനത്താവളത്തിൽ ഉദ്ഘാടന ദിവസ്റ്റ് പതിനഞ്ചോളം വിമാനങ്ങൾ എയർപോർട്ടിലുണ്ടാവും

ഉദ്ഘാടനച്ചടങ്ങിനെത്തുന്ന വിശിഷ്ട്യാതിഥികൾ ഉൾപ്പെടെയുളള യാത്രക്കാരെയും വഹിച്ച് ഉപ്പെകിട്ട് മൂന്നു മണിക്കാണ് ഈ വിമാനം തിരുവനന്തപുരത്തേക്ക് തിരിക്കുക വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇന്ന് വൈകീട്ട് മട്ടന്നൂരിൽ വിളംബര ഘോഷയാത്ര നടത്തും കണ്ണൂർ എയർപോട്ടിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ശിലാ സ്ഥാപനം ഇന്ന് രാവിലെ മന്ത്രി ഇ പി ജയരാജൻ നിർവഹിക്കും

നവോത്ഥാന മൂല്യ സംരക്ഷണസമിതിയുടെ സ്വാഗതസംഘം ഓഫീസ് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം

കേരള നടനം മോഹിനിയാട്ടം തിരുവാതിരക്കളി നാടോടി നൃത്തം ഒപ്പന ചവിട്ടുനാടകം തുടങ്ങിയ മത്സരങ്ങള ാണ് ഇന്ന് രാവിലെ നടക്കുന്നത്

സ്കൂൾ കലോത്സവ ചരിത്രത്തിൽ അപ്പീലുകൾ ഏറ്റവും കുറ വുളള വർഷമാണിത് സംസ്ഥാനതല വിധി കർത്താക്കളുടെ മുഴു വൻ പട്ടികയും വിജിലൻസിന് കൈമാറിയ്ടിട്ടുണ്ട്ട്

ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കൊച്ചിയിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പൂനെ സിറ്റിയെ നേരിടും

ഇന്നത്തേതടക്കം നാല് ഹോം മത്സരങ്ങ ളുൾപ്പെടെ എട്ട് കളികളാണ് ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയുളളത് ഈ മത്സരങ്ങളിലെല്ലാം ജയിച്ചാലും ബ്ലാസ്റ്റേഴ്സിന്റെ സെമി പ്രവേ ശനം അനിശ്ചിതത്വത്തിലാണ് മുംബൈയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സി ചെന്നൈയിൻ എഫ് സി യെ എതിരില്ലാത്ത രണ്ട് ഗോളിന് തോൽപിച്ചു ഇതോടെ മുംബൈ സിറ്റി പോയന്റ് പട്ടിക യിൽ രണ്ടാം സ്ഥാനത്തെത്തി തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി തെക്കുംകര മലാക്കയിൽ വീടിനുളളിൽ ഉണ്ടായ സ്ഫോടനത്തിൽ രണ്ട് കുട്ടികൾ മരിച്ചു

ഡാന്റേഴ്സിന്റെ മക്കളായ പത്തു വയസുകാരി ഡാൻഫിലീസ് രണ്ടുവയസ്സുകാരി സലസ്മിയ എന്നിവരാണ് മരിച്ച ത്

വീ ട്ടിനുളളിലെ ഇൻവർട്ടറിൽ നിന്നാണോ ഗ്യാസ് സിലിണ്ടറിൽ നിന്നാണോ സ്ഫോടനം ഉണ്ടായതെന്ന് പൊലീസ് അന്വേഷിച്ചു വരു ന്നു

ആർക്കും പരിക്കില്ല ചന്തയ്ക്കുള്ളിലെ പച്ചക്കറി തുണി വിൽപ്പനശാലകൾ ആണ് കത്തിയത് പുലർച്ചെ മൂന്നര മണിയോടെയായിരുന്നു സംഭവം

ലഹരിമുക്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനാ വശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നട്ടപ്പിലാക്കുവാൻ വേണ്ടി രൂപീ കരിച്ച വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ സംഘടിപ്പിക്കുന്ന ബോധവത്കരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടു ത്തുമെന്ന് മന്ത്രി ടി പ്പി രാമകൃഷ്ണൻ അറിയിച്ചു ഇതിന്റെ ഭാഗമായി സ്കൂളുകളിലും കോളജുകളിലും പ്രവർത്തി ച്ചുവരുന്ന ലഹരി പ്പിരുദ്ധ ക്ലബ്ബുകൾ കൂടുതൽ സ്ഥാപനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു

വയനാട് ജില്ലയിലെ പണിയൻ സമുദായം തലമുറകളായി കൈവശം വെച്ചുവരുന്ന ഭൂമിക്ക് പട്ടയം നൽകണമെന്നും വനാവ കാശ നിയമപ്രകാരം ലഭിച്ച ഭൂമിയുടേയും നിലവിൽ ഇവരുടെ കൈവശമുളള ഭൂമിയുടെയും രേഖകൾ അടിയന്തരമായി ഇവർക്ക് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും നിയമസഭയുടെ പട്ടി കജാതി പട്ടികവർഗക്ഷേമം സംബന്ധിച്ചു സമിതി ശുപാർശ ചെയ്തു പണിയൻ സമുദായത്തിന് ആശിക്കും ഭൂമി ആദിവാസികൾക്ക് സ്വന്തം പദ്ധതിയിൽ ഭൂമി വാങ്ങുന്നതിന് ഗവ അനുവദിച്ച തുക അർഹതപ്പെട്ടവർക്ക് ലഭ്യമാക്കണം

സംസ്ഥാനത്ത് നിപ വൈറ്സ് ബ്രി്ധ റിപ്പോർട്ട് ചെയ്തിട്ടു ണ്ടെന്ന വാർത്ത അടിസ്ഥാന ർഹിതമാണെന്ന് കോഴിക്കോട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ

നിപ വൈറസ് സംക്രമണം ഡിസംബർ മുതൽ ജനുവരി മാസങ്ങളിൽ ആയതി നാൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന സന്ദേശം മാത്ര മാണ് ആരോഗ്യവകുപ്പ് നൽകിയതെന്ന് അവർ കോഴിക്കോട്ട് വൃക്തമാക്കി സ പാലക്കാട് ജില്ലയിൽ നിപ്പ രോഗം പടരുന്നുവെന്ന വ്യാജ സന്ദേശം സ്മൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച ഒരാൾക്കെതിരെ പോലീസ് കേസെടുത്തു ആരോഗ്യവകുപ്പിന്റെ പരാതിയിലാണ് കേസ് ജില്ലയിൽ നിപ്പ രോഗമോ ലക്ഷണമോ ഇല്ലെന്നും മറിച്ച് നടത്തുന്ന പ്രചാരങ്ങൾ തെറ്റാണെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ